പ്രശസ്ത എഴുത്തുകാരി അഷിത അന്തരിച്ചു

ൾ ൽ ൾ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും നാളെ മുതൽ നാമനിർദേശ പത്രിക സമർപ്പിക്കാം അവസാന തിയ്യതി ഏപ്രിൽ നാലാണ് അഞ്ചിന് സൂക്ഷ്മപരിശോധന നടക്കും എട്ടാം തിയ്യതി വരെ പത്രിക പിൻവലിക്കാം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശീലനം വരുംദിവസങ്ങളിൽ തുടങ്ങും

മണ്ഡലം മാറാൻ നൽകിയ അപേക്ഷകള ടക്കമാണിത് ഏപ്രിൽ നാലിനകം അപേക്ഷകളിൽ തീരുമാ നമെടുക്കാൻ ജില്ലാ കലക്ടർമാർക്കും തഹസിൽദാർമാർക്കും അദ്ദേഹം നിർദേശം നൽകി

ഇനിയും അപേക്ഷ നൽകാമെങ്കിലും അത്തരക്കാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാവില്ലെന്ന് മുഖ്യ തെരഞ്ഞെ ടുപ്പ് ഓഫീസർ അറിയിച്ചു

തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ഉത്ത രവ് ഇറക്കേണ്ടതിന്റെ അടിയന്തര സാഹചര്യം വിശദീകരി ക്കണമെന്നും ടിക്കാറാം മീണ ആവശ്യപ്പെട്ടു കർഷകരുടെ എല്ലാ വായ്പകൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും ജപ്തിനടപടികൾ നിർത്തിവെക്കാനും ബാങ്കുകളോട് ആവശ്യപ്പെടാൻ ഈ മാസം അഞ്ചിനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാരൃത്തിൽ തീരുമാനും വൈകില്ലെന്ന് ഹൈക്ക മാന്റ് ന്യൂഡൽഹിയിൽ അറിയിച്ചു കേരളം തമിഴ്നാട് ആ ന്ധ്ര കർണാടക പ്രദേശ്നകോൺഗ്രസ് കമ്മിറ്റികൾ രാഹുൽഗാന്ധി അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടി രുന്നു എന്നാൽ കർണാടകയും കേരളവുമാണ് അന്തിമ പരി ഗണനയിൽ എന്നാണ് റിപ്പോർട്ട്

മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയുടെ സിറ്റിങ് സീറ്റായ കാൺപൂരിൽ സത്യദേവ് പച്ചോഡിയാണ് മത്സരി ക്കുന്നത് മുരളി മനോഹർ ജോഷിയെ കൂടാതെ എൽ

അദ്ധാനി ശാന്തകുമാർ ബി

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്ന് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു

പിയിലെ ഒന്നും ഗുജറാത്തിലെ രണ്ടും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ യാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്

ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി

യുഡിഎഫ് കാസർകോഡ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നായൻമാർമൂല യിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധീരൻ ഇടുക്കിയിലെ ക്ർഷകരെ കബളിപ്പിച്ച ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു യുഡിഎഫ് തൊടു പുഴ്ച് നിയോ ജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇടതു ഗവൺമെന്റ് നാടകം കളിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി യുഡിഎഫും എൽഡിഎഫും പൊതുസ്ഥാനാർത്ഥിയായി രാഹുൽഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിച്ചാലും പരാജയ പ്പെടുത്താൻ എൻഡിഎക്ക് സാധിക്കു മെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡണ്ട് പി

ശ്രീധരൻപിള്ള ആലപ്പുഴ യിൽ പറഞ്ഞു

വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുട രുമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു

തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവുമധികം പണവും സാധനങ്ങളും കണ്ടെടുത്തത്

പ്രശസ്ത എഴുത്തുകാരി അഷിത അന്തരിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ തൃശൂർ അശ്വിനി ആശുപത്രിയി ലായിരുന്നു അറുപത്തിമൂന്നുകാരിയായ അഷിതയുടെ അന്ത്യം അർബുദ രോഗബാധയെ തുടർന്ന് കുറച്ചുകാല മായി ചികിത്സയിലായിരുന്നു അവർ സ്ത്രീപക്ഷ എഴുത്തുകാരിയെന്ന നിലയിൽ അംഗീക രിക്കപ്പെട്ട അഷിത നിരവധി ബാലസാഹിത്യകൃതികളും കവി

ഹൈക്കു കവിതകൾ ഉൾപെടെ ഒട്ടേറെ അനൃഭാഷാകൃതികൾ അവർ പരിഭാഷപ്പെടുത്തുകയും ചെയ്തു ചെറുകഥകളിൽ സ്ത്രീജീ വിതത്തിന്റെ വിഹ്വലതകളും തുറന്നുപറച്ചിലുകളും വരച്ചു കാട്ടിയ അഷിത ചെറുപ്പത്തിൽ വീട്ടിലെ കഠിനമായ എതിർപ്പു കൾ മറികടന്നാണ് എഴുത്തിന്റെ ലോകത്ത് പ്രശസ്തയായ ത്

പിന്നീട് എറ്റണ്ടാകുളം മഹാരാജാസ് കോളജിൽ നിന്ന് ഇംഗ്ളീഷിൽ ബിരുദാനന്തര ബിരുദം നേടി വിസ്മയ ചിഹ്നങ്ങൾ അപൂർണ വിരാമങ്ങൾ അഷിത യുടെ കഥകൾ മഴമേഘങ്ങൾ ഒരു സ്ത്രീയും പറയാത്തത് വിവാഹം ഒരു സ്ത്രീയോട്ട് ചെയ്യുന്നത് എന്നിവയടക്കം ഒട്ടേറെ കൃതികൾ പ്രശസ്തങ്ങളാണ്

ആലപ്പുഴയിൽ ആകാശവാണി എഫ്എം നിലയത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു

തിരുവനന്തപുരം ആകാശവാണി നിലയത്തിന്റെ പരിപാടികളാണ് ആലപ്പുഴ എഫ്എം റിലേ ചെയ്യുന്നത് അഖിലകേരള റേഡിയോ ലിസണേഴ്സ് അസോസി യേഷൻ നിലയത്തിന്റെ പ്രവർത്തനത്തെ സ്വാഗതം ചെയ്തു പുതിയ നിലയത്തിന് സ്വതന്ത്ര പദവി നൽകണമെന്ന് ആവ ശ്യപ്പെട്ട് വാർത്താവിതരണ പ്രക്ഷേപണത്തിന് നിവേദനം നൽകു മെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ

ആലപ്പാട് അറിയിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ യാത്ര ക്കാർക്കായി ഇന്നലെ തുറന്നുകൊടുത്തു

സദാശിവം ടെർമിനൽ ഉദ്ഘാടനം ചെയ്തിരുന്നു ഇന്നലെ വൈകീട്ട് ഒമാൻ എയർവെയ്സ് വിമാനത്തിലെത്തിയ യാത്രക്കാർക്കാണ് പുതിയ ടെർമിനൽ തുറന്നുകൊടുത്തത് ആദ്യ യാത്രക്കാർക്കും ജീവനക്കാർക്കും എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥർ മധുരം നൽകി

പെരുമ്പാവൂർ ബെഥേൽ സുലോഖ പള്ളിയിലെ യാക്കോ ബായ ഓർത്തഡോക്സ് തർക്കത്തിന് പരിഹാരമായി ഇരു വിഭാഗങ്ങൾക്കും ആരാധനാസമയം ക്രമീകരിച്ച് ജില്ലാ കല ക്ടർ മുഹമ്മദ് വൈ സഫീറുല്ലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പരിഹാരം നിർദേശിച്ചത് പള്ളി തർക്കത്തിൽ പുതിയ കോടതിവിധി ഉണ്ടാകുന്നതുവരെ ക്രമീ കരണം തുടരും വിവാഹം മരണം ഉൾപെടെ സന്ദർഭങ്ങൾ പ്രത്യേകമായി പരിഗണിച്ച് തീരുമാനിക്കും പള്ളി അടയ്ക്കു കയും തുറക്കുകയും ചെയ്യുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആയിരിക്കും

ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്

ഇന്നലെ ന്യൂഡൽഹിയിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ആറ് വിക്കറ്റിനാണ് ചെന്നൈ തോൽപിച്ചത്

എലിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും

മലേഷ്യയിലെ ഇപ്പോയിൽ അസ്ലാൻഷാ ഹോക്കിയിൽ ഇന്ത്യക്ക് ജയം ആതിഥേയരായ മലേഷ്യയെ രണ്ടിനെതിരെ നാല് ഗോളിനാണ് ഇന്തൃ തോൽപിച്ചത് രണ്ട് ജയവും ഒരു സമനിലയുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ രണ്ടാം സ്ഥാന ത്താണ് ദക്ഷിണ കൊറിയയാണ് ഒന്നാം സ്ഥാനത്ത്

സ്വിഫ്റ്റ് നടപടികളിൽ നിയമപരമായ നിർദേശങ്ങൾ പാലിക്കാത്തതിന്റെ പേരിലാണ് നടപടി സംസ്ഥാനത്ത് കൊടുംചൂട് തുടരുന്നു ഇന്നലെ വിവിധയിടങ്ങളിലായി അറുപതോളം പേർക്ക് സൂര്യാ തപമേറ്റു

ഉത്സവദിവസം രാവിലെ ആറു മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ തീർത്ഥാടകരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടും